ഗോതബായ രാജപക്സെയുമായി ചർച്ച നടത്തി

സ്ഥിരീകരിച്ചു

എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കിരീട പോരാട്ടം

എടികെ മോഹൻ ബഗാനും മുംബൈ സിറ്റിയും നേർക്കുനേർ

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ച് ഇരു നേതാക്കളും വിശകലനം ചെയ്തു

വിവിധ രാജൃങ്ങളിൽ നിന്നുള്ള വ്യിദ്ധ്യാർത്ഥികൾ ആയുർവേദവും പരമ്പരാഗത ചികിത്സാ രീത്യികളും പഠിക്കുന്നതിനായി ഈ കേന്ദ്രങ്ങളിൽ എത്തിച്ചേരുമെന്നും ആദ്ദേഹം പറഞ്ഞു

ആയൂർവേദത്തിനോടും പരമ്പരാഗത ചികിത്സാ രീതികളോടും വർദ്ധിച്ചുവരുന്ന താൽപര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ആയുർവേദ ചികിത്സാ മേഖലയിൽ ലോകത്താ കമാനം പ്രവർത്തിക്കുന്ന മുഴുവൻ പേരേയും പ്രധാന മന്ത്രി അഭിനന്ദിച്ചു ആയുർവേദത്തിൽ ഗവേഷണങ്ങൾ നടത്താൻ സർക്കാർ എല്ലാ പിന്തുണയും നൽകും

ഇതിലൂടെ ആയൂർവേദ ചികിത്സയേയും വിദ്യാഭ്യാസത്തേയും കൂടുതൽ ശക്തി പ്പെടുത്താനാകും ആധുനിക ചികിത്സാ രീതികൾക്കൊപ്പം പരമ്പരാഗത ഔഷധങ്ങളും ആവശ്യമാണെന്ന് ലോകം മനസ്സിലാക്കി ക്കൊണ്ടിരി ക്കുകയാണെന്നും പ്രധാനമന്ത്രി വൃക്തമാക്കി

വാരാണസിയിൽ എത്തിയ അദ്ദേഹത്തെ ഗവർണർ ആനന്ദി ബെൻ പട്ടേലും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്ന് സ്വീകരിച്ചു കാശി വിശ്വനാഥ ക്ഷേത്രം സന്ദർശിച്ച അദ്ദേഹം ഗംഗാ ആരതിയിൽ പങ്കെടുത്തു വാരാണസിയിലെ പരിപാടികൾ കൂടാതെ സോൻഭദ്ര മിർസാപൂർ ജില്ലകളിലെ വിവിധ പരിപാടികളിലും അദ്ദേഹം സംബന്ധിക്കും നാളെ വൻവാസി സമാഗമത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി സോൻഭദ്ര ജില്ലയിലെ സേവാകുഞ്ച് ആശ്രമം ഉദ്ഘാടനം ചെയ്യും മറ്റന്നാൾ ഗംഗാ പരിസ്ഥിതിയും സംസ്ക്കാരവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യും

സർക്കാരിനെ വിമർശിക്കാൻ പ്രതിപക്ഷ് കക്ഷികൾക്ക് അവകാശമുണ്ട് എന്നാൽ സർക്കാരിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും എതിർക്കുന്ന നടപടി യുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടേണ്ടതാണെന്നും അദ്ദേഹം പറഞ്ഞു സഭ നിർത്തി വയ്ക്കേണ്ടിവരുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്നും ശ്രീ വെങ്കയ്യനായിഡു പറഞ്ഞു പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട രാജ്യസഭാംഗങ്ങൾക്കായി ഒരുക്കിയ ദിദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയാ യിരുന്നു അദ്ദേഹം

ഇന്ന് ഒരു പുതിയ ഹോട്ട് സ്പോട്ടാണ് ഉള്ളത്

യാത്രക്കാർ മാസ്കുകൾ ശരിയായി ധരിക്കുകയും യാത്രക്കിടെ സാമൂഹിക അകലം പാലിക്കുകയും വേണം കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാത്ത യാത്രക്കാരെ വിമാനയാത്രയിൽ നിന്ന് ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട്

ബംഗളൂരു പൂനെ ഭുവനേശ്വർ പടന് മണിപൂരിലെ മൊയിറാംഗ് ജമ്മുവിലെ സാംബ എന്നിവിടങ്ങളിലെ പ്രദർശനങ്ങളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് കൂടാതെ ഡൽഹിയിലെ ദേശീയ മാധ്യമ കേന്ദ്രത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനത്തിനും ശ്രീ

ഡി

ധർമ്മടത്തു നിന്നുള്ള ജ്ന്വിധി തേടുന്ന മുഖൃമന്ത്രി പിണറായി വിജയൻ തിങ്കളാഴ്ച പ്രസ്തമീനിർദ്ദേശ പത്രിക സമർപ്പിക്കും

ജെ

യുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്ന് ന്യൂഡ്ൽഹിയിൽ ചേരുന്ന പാർലമെന്ററി ബോർഡ് യോഗത്തിന് ശേഷം ഉണ്ടാകും

കൂടുതൽ വിവരങ്ങളുമായി പ്രവീൺ കുമാർ

മുഖ്യമന്ത്രി എടപ്പാടി കെ പളനിസാമിയുടെ നേതൃത്വത്തിൽ എ

തമിഴ്നാട്ടിൽ മിക്ക രാഷ്ട്രീയ കക്ഷികൾക്കുള്ളിലും സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി പ്രശ്നങ്ങൾ നില നിൽക്കുന്നുണ്ടെങ്കിലും അവയെല്ലാം മാറ്റി വച്ച് തിരഞ്ഞെടു പ്പിനെ നേരിടാൻ ചിട്ടയായ പ്രവർത്തനങ്ങളിലേയ്ക്ക് ഒത്തൊരുമ യോടെ ഇറങ്ങാൻ പ്രവർത്തകരോട് നേതാക്കന്മാർ ആഹ്വാനം ചെയ്തു പദ്ധതികൾ സമയബന്ധിതമായി നടപ്പിലാക്കുന്നതിനും വിലയിരുത്തു ന്നതിനുമായി ഒരു പ്രത്യേക വകുപ്പ് ആരംഭിക്കുന്നതുൾപ്പെടെ ഉൾക്കൊള്ളുന്ന പ്രകടന പത്രിക ഡി

നേതാവ് എം

അതേസമയം സംസ്ഥാനത്ത് രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിനായുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നലെ അവസാനിച്ചു

ഗോവയിലെ ഫറ്റോർദ സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ മുംബൈ സിറ്റി എ

കഴിഞ്ഞ സീസണിലെ ചാമ്പൃൻ മാരായിരുന്ന എ ടി കെ മോഹൻ ബഗാനുമായി ലയിച്ചതിനു ശേഷം ഇറങ്ങുന്ന ആദ്യ സീസണാണിത്

രണ്ട് തവണ പരാജയപ്പെടുത്തിയതിന്റെ ആത്മവിശ്വാസത്തൊടെയാണ് മുംബൈ കളത്തിലിറങ്ങുന്നത്

പരമ്പരയിൽ ദക്ഷിണാഫ്രിക്കയാണ് മുന്നിട്ട് നിൽക്കുന്നത്

രാത്രി ഏഴിന് കളി ആരംഭിക്കും

ഇന്നലെ നടന്ന ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ട് എട്ട് വിക്കറ്റിന് വിജയച്ചു